തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മുഖ്യമന്ത്രി

കഴിയാത്ത വിദ്യാർത്ഥികൾക്ക്കായി ഇന്ന് വീണ്ടും പരീക്ഷ

പ്രകൃതിദുരന്തങ്ങൾ ഇരട്ടിപ്പിച്ചെന്ന് ഐക്യരാഷ്ട്ര സംഘടന

വരും ദിവസങ്ങളിൽ ഇടിമിന്നലിനും സാധ്യത ഐ

രാജസ്ഥാൻ റോയൽസ് മത്സരം

ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനമെന്ന് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി ജോസ് കെ മാണി പറഞ്ഞു

ഡി എഫിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ലഭിച്ച രാജ്യസഭാംഗത്വം താൻ രാജിവയ്ക്കുകയാണെന്നും അദ്ദേഹം കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രാഷ്ട്രീയ നിലപാട് എൽ ഡി എഫിനെ അറിയിച്ചെന്നും ഇനി തീരുമാനം എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെയെന്നും ജോസ് കെ മാണി പറഞ്ഞു ഉപാധികളില്ലാത്ത പിന്തുണയാണ് എൽ ഡി

മാണി വിഭാഗത്തെ തകർക്കാൻ യു ഡി

കാർഷിക മേഖല ഉൾപ്പെടെ നേരിടുന്ന പ്രതിസന്ധിക്കുനേരിടുന്നതിനുള്ള മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലൂപ്പൂർ ഇടതുമുന്നണി യുമായുള്ള സഹകരണം കേരള രാീഷ്ട്ര്ട്രീയത്തിലെ നിർണ്ണായക വഴിത്തിരിവാകും കേരള കോൺൺസ്സ് എമ്മിന്റെ മുന്നണി മാറ്റമെന്ന് ജോസ് കെ മാണി പ്റ്റുണ്ടു

ഡി

ഡി

തുടർന്നുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യമുന്നണി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഡി എഫിനെ വഞ്ചിച്ചാണ് ജോസ് കെ മാണി പുറത്തുപോയതെന്ന് പി

ധാർമികതയുടെ പേരിലാണെങ്കിൽ രാജ്യസഭാംഗത്വം മാത്രമല്ല ലോക്സഭാംഗത്വവും എം

എ സ്ഥാനവും രാജിവയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഹസൻ രാഷ്ട്രീയ സദാചാരമില്ലാത്ത തീരുമാനമാണ് ജോസ് കെ മാണിയുടേതെന്ന് യു ഡി

നാലു വെള്ളിക്കാശിന് വേണ്ടിയാണ് എൽ ഡി

സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയുള്ള ആത്മഹത്യാപരമായ തീരുമാനമാണിതെന്ന് യു ഡി എഫ് കൺവീനർ എം

ഡി

എഫിൽ അടിയുറച്ചു നിൽക്കുമെന്ന് മാണി

പാർട്ടിയുടെ നേതൃയോഗം വെള്ളിയാഴ്ച കൊച്ചിയിൽ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു കേരളാ കോൺഗ്രസ്എം ജോസ്

മാണി വിഭാഗം എൽ

എഫിലേക്കു വരുന്ന പക്ഷം മാണ്ണി

എഫിലേക്കു പോകുമെന്ന പ്രചർണ്ടത്തോടു പ്രതികരിക്കുകയായിരുന്നു മാണി

രണ്ടു കോടി രൂപയുടെ വരെ വായ്പകൾക്ക് മൊറട്ടോറിയം കാലത്ത് കൂട്ടുപലിശ ഈടാക്കില്ലെന്നും അത് കേന്ദ്ര സർക്കാർ വഹിക്കുമെന്നും ധന മന്ത്രാലയം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

സി തുണിമില്ലുകളിലെ തൊഴിലാളികൾക്ക് ശമ്പളം തീർത്തു നൽകുമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അറിയിച്ചതായി കെ

ഇതു സംബന്ധിച്ചു എം പി കേന്ദ്ര മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു

ടെലിവിഷൻ മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ക്ക്സുകളിൽ ചർച്ച നടത്തുന്നത് നീതിന്യായ സംവിധാനത്ത് അപകടത്തിലാക്കുമെന്നും വിഷയം കോടതി പരിശോധിക്ക്ണ്ടു്മന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

തുടർച്ചയായ അഞ്ചാം ദിവസവും രാജ്യത്തൊട്ടാകെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഒൻപത് ലക്ഷത്തിൽ താഴെയാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു കോവിഡ് പരിശോധനാ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട്

ആൾക്കൂട്ടമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഓരോരുത്തരും സ്വയം വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

ഇക്കാരൃം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കണമെന്നും വൃവസ്ഥയുണ്ട്

കുട്ടികളിലൂടെ ബോധവൽക്കരണം മികച്ച രീതിയിൽ വീടുകളിലെത്തിക്കാമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തി ലാണ് കുട്ടികളെ ദൌതൃത്തിന്റെ പ്രചാരകരാക്കുന്നത്

ഒരു റിപ്പോർട്ട്

എൻ

ആർ ആർ മേധാവി മാമി മിസുറ്റൊറി പറഞ്ഞു

ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രകൃതിക്ഷോഭങ്ങൾ ഏറെയും

മനുഷ്യരുടെ ഇടപെടലിന്റെ ഫലമാണ് ഈ വർധനയെന്നും കാലാവസ്ഥാ മാറ്റം തടയാൻ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ ഭൂമി വാസയോഗൃമല്ലാതാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കേരള തീരത്ത് നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് ആവശ്യപ്പെട്ടു

ഉച്ചക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയാണ് മിന്ന്ല്ലീന് കൂടുതൽ സാധ്യത

സ്വർണ്ണവില കുറഞ്ഞു